ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നടത്തും

കശ്മീരിൽ സ്ത്രീകളുടെ അവകാശ്ം സ്ംബന്ധിച്ച് പാകിസ്ഥാൻ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഇന്ത്യ തള്ളി

തീവ്രവാദി കൊല്ലപ്പെട്ടിു

രാജ്യമെമ്പാടും ഇന്ന് വിജയദശമി ആഘോഷിക്കുന്നു

തെക്കൻ ഫ്രാൻസിലെ മെറിനാക്കിൽ ഫ്രഞ്ച് പ്രതിരോധമന്ത്രി ഫ്ളോറൻസ് പാർലിയിൽ നിന്നാണ് റഫാൽ യുദ്ധവിമാനങ്ങൾ അദ്ദേഹം ഔപചാരികമായി ഏറ്റുവാങ്ങുക

ഫ്രഞ്ച് പ്രതിരോധ മന്ത്രിയുമായി വാർഷിക പ്രതിരോധ സംഭാഷണങ്ങളിലും അദ്ദേഹം പങ്കെടുക്കും

രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടിയാണ് പാകിസ്ഥാൻ ഇത്തരം പ്രശ്നങ്ങൾ ഉയർത്തുന്നതെന്ന് ഐകൃരാഷ്ട്ര സഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പൌലോമി ത്രിപാഠി പറഞ്ഞു സ്ത്രീകളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്ന ഒരു രാജ്യം അതേ കാര്യം പറഞ്ഞ് മറ്റൊരു രാജ്യത്തെ കൂറ്റപ്പെടുത്തുന്നത് വിരോധാഭാസമാണെന്ന് അവർ പറഞ്ഞു ഐകൃരാഷ്ട്ര പൊതുസഭയുടെ വനിതകളെസംബന്ധിച്ച മൂന്നാം സമിതിയുടെ സമ്മേളനത്തിലാണ് ശ്രീമതി ത്രിപാഠിയുടെ പ്രതികരണം പാകിസ്ഥാന്റെ സ്ഥാനമൊഴിയുന്ന യുഎൻ സ്ഥാനപതി മഹേല ലോധിയുടെ കശ്മീർ പരാമർശത്തിനുള്ള മറുപടിയായാണ് ശ്രീമതി ത്രിപാഠി ഇങ്ങനെ പറഞ്ഞത്

അധ്യക്ഷനായിരുന്ന രാജ് ബെബ്ബാറിനെ മാറ്റിയാണ് തംകുഹി രാജ് മണ്ഡലത്തിൽ നിന്നുള്ള എം

എ അജയ്കുമാർ ലല്ലുവിനെ നിയമിച്ചത് മുതിർന്ന കോൺഗ്രസ് നേതാവ് പ്രമോദ് തിവാരിയുടെ മകളായ ആരാധനാ മിശ്രയെ പാർട്ടിയുടെ നിയമസഭാകക്ഷി നേതാവായി നിയമിച്ചതായും കോൺഗ്രസ് ലഖ്നൌവിൽ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു

മരങ്ങൾ വച്ചുപിടിപ്പിക്കുന്നത് പരിസ്ഥിതി സംരക്ഷണത്തിന് അത്യന്താപേക്ഷിത മാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ന് രാവിലെ ജയ്പൂരിലെ മാളവ്യ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ വൃക്ഷതൈകൾ നട്ടുപിടിപ്പിച്ചശേഷം മാധ്യമങ്ങളുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തൈകൾ നടുന്നത് നമുക്കുവേണ്ടി തന്നെയുള്ള ഓക്സിജൻ ബാങ്കുകളെ ഉണ്ടാക്കുന്നതുപോലെയാണെന്നും ശ്രീ ജാവ്ദേക്കർ പറഞ്ഞു

എം ന്റെ ശിലാസ്ഥാപനം കേന്ദ്ര മാനവ വിഭവശ്ശേഷി വകുപ്പ് മന്ത്രി രമേശ് പൊക്രിയാൽ നിർവ്വഹിച്ചു

എം ക്യാപസിൽ ലൈബ്രറി ഫ്റോസ്റ്റ്ൽ തുടങ്ങിയ സൌകര്യങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു

ഇന്നലെ ശ്രീനഗറിൽ ഗവർണർ സത്യപാൽ മാലിക്കിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സുരക്ഷാ അവലോകന യോഗമാണ് വിലക്ക് നീക്കാൻ തീരുമാനിച്ചത് കഴിഞ്ഞ ആറാഴ്ചയായി കശ്മീരിൽ കടുത്ത നിയന്ത്രണങ്ങളില്ലെന്ന് ഗവൺമെന്റ് വക്താവ് അറിയിച്ചു ബ്ലോക്ക് വികസന കൌൺസിലിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ ഗവർണർ വിലയിരുത്തി

സിംഗ്ഇന്നലെ ജമ്മു ഡിവിഷനിലെ ടൈഗർ വിഭാഗം സന്ദർശിച്ച് സജ്ജീകരണങ്ങൾ വിലയിരുത്തി മേഖലയിൽ വിന്യസിച്ചിരിക്കുന്ന സേനയോട് രാജ്യം നേരിടുന്ന ഭീഷണികളെക്കുറിച്ച് സദാ ജാഗരൂഗരായിരിക്കാൻ ശ്രീ

രാജ്യാതിർത്തി സംരക്ഷിക്കുന്നതിനായി നടത്തുന്ന പരിശ്രമങ്ങൾക്ക് എല്ലാ സുരക്ഷാ ഏജൻസികളേയും അദ്ദേഹം അഭിനന്ദിച്ചു ശത്രുക്കളുടെ ഏത് പദ്ധതികളേയും പരാജയപ്പെടുത്താൻ സുരക്ഷാവിഭാഗങ്ങളുടെ ഏകോപിച്ചുള്ള പ്രവർത്തനം അത്യാവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു

ഇയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല മേഖലയിൽ തീവ്രവാദികളുടെ സാന്നിധ്യമുണ്ടെന്ന വിവരം ലഭിച്ചതിനെത്തുടർന്ന് സുരക്ഷാസേന ഇന്നലെ പുലർച്ചെ നടത്തിയ തെരച്ചിലിനിടെ തീവ്രവാദികൾ വെടിവയ്പ് ആരംഭിച്ചു തുടർന്ന് സേന നടത്തിയ തിരിച്ചടിയിലാണ് തീവ്രവാദി കൊല്ലപ്പെട്ടത്

വ്യോമസേനാ ദിനാഘോഷങ്ങളുടെ ഭാഗമായി നടന്ന പരേഡിൽ വിവിധ ചെറുവിമാനങ്ങൾ ഉജ്ജ്വല പ്രകടനം കാഴ്ചവെച്ചു വിമാനത്തിൽ നിന്ന് ആകാശഗംഗ ടീമിന്റെ ആകാശഡൈവർമാർ കൊടിയുമായി പറന്നിറങ്ങിയാണ് പ്രകടനങ്ങൾ ആരംഭിച്ചത് ബാലാകോട്ട് വ്യോമാക്രമണത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ വ്യോമസേനാ ഉദ്യോഗസ്ഥർ വ്യോമാഭ്യാസം നടത്തി വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാന്റെ നേതൃത്വത്തിൽ നടന്ന മിഗ് വ്യോമാഭ്യാസമായിരുന്നു ചടങ്ങിലെ മുഖ്യാകർഷണം രാജ്യത്തിന്റെ വ്യോമാതിർത്തിയുടെ സുരക്ഷയ്ക്കായി പ്രവർത്തിക്കാൻ വ്യോമസേന എന്നും സ്നെദ്ധമായിരിക്കുമെന്ന് ചടങ്ങിൽ വെച്ച് സംസാരിക്കവെ വ്യോമസ്നേനാ മേധാവി രാകേഷ്കുമാർസിംഗ് ബഡൌരിയ പറഞ്ഞു

രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്തി എന്നിവർസേനാംഗങ്ങളെഅഭിനന്ദിച്ചു ന്യൂസ്ഡെസ്ക്ആകാശവാണി

വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ ആർ

ബദൌരിയ കരസേനാ മേധാവി ജനറൽ ബിപിൻ റാവത്ത് നാവികസേനാ മേധാവി അഡ്മിറൽ കരംബീർ സിംഗ് എന്നിവർ യുദ്ധസ്മാരകത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചു

രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡു പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ ജനങ്ങൾക്ക് വിജയദശമി ആശംസകൾ നേർന്നു

എം എന്ന തീവ്രവാദ സംഘടനയുടെ പ്രവർത്തികൻ അറസ്റ്റിൽ

നാഷനലിസ്റ്റ് പീപ്പിൾസ് പാർട്ടിയുടെ എം

കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ അഞ്ചു പ്രതികളെ എൻ ഐ എ അറസ്റ്റു ചെയ്തിരുന്നു

ഡി ഐ എൽ പ്രമോട്ടർ വാധാന്റേതാണെന്നും വസതി സീൽ ചെയ്തതായും അധികൃതർ പറഞ്ഞു

വ്യാഴാഴ്ച നടക്കുന്ന കാർട്ടറിൽ ദക്ഷിണകൊറിയയുടെ കിംഹ്യാങ് മി ആണ് മ്ഞ്ജുവിന്റെ എതിരാളി

പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി ഇന്നലെ അവസാനിച്ചതോടെയാണ് മത്സരചിത്രം തെളിഞ്ഞത് ഛണ്ഡിഗഡിൽ സ്ഥാനാർത്ഥികൾക്ക് ചിഹ്നങ്ങൾ അനുവദിച്ചതായി ജോയിന്റ് ചീഫ് ഇലക്ടറൽ ഓഫീസർ ഡോ